തീപിടുത്തം

കേരളത്തിൽ കന്ത്ത മഴ തുടരുന്നു

വൻ നാശനഷ്ടം

രൂക്ഷം താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ

മൂന്ന് സ്ത്രീകളടക്കം എട്ടു കോവിഡ് രോഗികൾ മരിച്ചതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു

പ്രദേശത്തെ നിലവിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രുപാണിയുമായും അഹമ്മദാബാദ് മേയർ ബിജാൽ പട്ടേലുമായും പ്രധാനമന്ത്രി ചർച്ചു നടത്തി

ജെ പി സർപഞ്ച് കൊല്ലപ്പെട്ടു സജാദ് അഹമ്മദ് ഖാണ്ഡെയാണ് കൊല്ലപ്പെട്ടതെന്ന് ഗുൽഗാം സീനിയർ പോലീസ് സൂപ്രണ്ട് ഗുർവിന്ദർ പാൽസിംഗ് അറിയിച്ചു ഭീകരർക്കായുള്ള തെരച്ചിൽ സുരക്ഷാസേന ശക്തമാക്കി

ധനകാര്യ നയ സമിതി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോടാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് റിപ്പോ നിരക്കും റിവേഴ്സ് റിപ്പോ നിരക്കും മാറ്റമില്ലാതെ തുടരുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ അറിയിച്ചു

ജൂലൈ സെപ്റ്റംബർ പാദത്തിൽ പണപ്പെരുപ്പം കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു

ഡി പി വളർച്ച നെഗറ്റീവ് ആയിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി

മുർമു രാജിവെച്ചു

എസ് ഉദ്യോഗസ്ഥനായ മുർമു കഴിഞ്ഞ വർഷം ഒക്ടോ്ബറീലാണ് ചുമതലയേറ്റത്

ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന ഗിരീഷ് ചന്ദ്ര മുർമുവിന്റെ രാജി സ്വീകരിച്ചാണ് നടപടി

ആ ദുരന്തത്തിന്റെ ബാക്കിപത്രം ഇന്നും ഹിരോഷിമയിൽ കാണാം

ലോക ചരിത്രത്തിൽതന്നെ സമാനതകളില്ലാത്ത കൂട്ടക്കുരുതിയ്ക്കായിരുന്നു ഹിരോഷിമ സാക്ഷിയായത്

കേരള ലക്ഷദ്വീപ് തീർങ്ങളിൽ നിന്നും മീൻപിടുത്തത്തിന് കടലിലേയ്ക്ക് പോകരുതെന്ന് മുന്നറിയിപ്പ് ഉണ്ട് മലയോര മേഖലകളിൽ രാത്രിയാത്ര നിരോധിച്ചിട്ടുണ്ട്

കൊല്ലത്ത് ശക്തമായി വീശിയ കാറ്റിൽ പലയിടത്തും വൈദ്യുതിലൈനുകളും മരങ്ങളും ഒടിഞ്ഞുവീണു

വടക്കൻ ജില്ലകളിൽ മഴ ശക്തമായി തുടരുന്നു

പെരിയാറിലും ചാലിയാറിലും ജലനിരപ്പ് ഉയരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ആറുകളുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്താൻ അധികൃതർ നിർദ്ദേശിച്ചു

കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ആകാശവാണി പ്രതിനിധി നസീർ ബാബു

ദാദർ ഗിർഗോൺ മഹിം ബൈക്കുള്ള അന്ധേരി എന്നിവിടങ്ങളിൽ ട്രെയിൻ ഗതാഗതം ഭാഗികമായി റദ്ദാക്കി

വെള്ളപ്പൊക്കം മൂലമുണ്ടായ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കാൻ് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി ജില്ലാ ഭരണകൂടങ്ങളോട് ആവശ്യപ്പെട്ടു

ഒട്ടേറെപ്പേർ മുഖാവരണം ധരിച്ചാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്

പ്രധാനമന്ത്രി മഹീന്ദ രാജപക്സെ മുൻ പ്രധാനമന്ത്രി റനിൽ വിക്രമസിംഗെ മുൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേന എന്നിവരാണ് മത്സരരംഗത്തെ പ്രമുഖർ

സങ്കീർണ്ണമായ പ്രശ്നങ്ങൾ പോലും സമാധാനപരമായി പരിഹരിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഇപ്പോൾ രാജ്യത്തുണ്ടന്നും ശ്രീ

ഏറ്റുമുട്ടലിൽ നിരവധി പേർക്ക് പരിക്കേറ്റു

ജനക്കൂട്ടത്തെ പിരിച്ചു വിടാനായി പോലീസ് ആകാശത്തേക്ക് വെടിവച്ചു